പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഉദ്ഘാടനം ചെയ്തു

ഊർജ്ജിതമാക്കി മുന്നണിക്കൾ ജനം എൽ ഡി എഫിന്റെപ്പ്മെന്ന് മുഖ്യമന്ത്രി

സർക്കാർ പരാജയ്മെന്ന് ബിജെപി അദ്ധ്യക്ഷൻ

തുടക്കമായി കൊല്ലം ബൈപ്പാസിൽ ടോൾ പിരിവ് നിർത്തിവയ്ക്കണമെന്ന് സംസ്ഥാനം കത്തെഴുതി

ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമായി വീടുകളിൽ പൊങ്കാലയർപ്പിച്ച് ഭക്തർ

രാജ്യത്താദ്യമായി സംഘടിപ്പിച്ച ദേശീയ കളിപ്പാട്ടമേള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

നാല് ദിവസത്തെ മേളയിൽ രാജ്യത്തുടനീളമുള്ള കളിപ്പാട്ട നിർമ്മാതാക്കൾ ഉപഭോക്താക്കൾ വിദ്യാർത്ഥികൾ അദ്ധ്യാപകർ തുടങ്ങിയവർ ഓൺലൈനായി പങ്കെടുക്കും

അഞ്ച് വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് ഭരണകക്ഷിയായ എൽ

ഭരണമാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ സർക്കാരിനെതിരെ പ്രചരണം ശക്തിപ്പെടുത്തുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐകൃജനാധിപതൃ മുന്നണി ശക്തമായ മത്സരം ഉറപ്പാക്കി നില മെച്ചപ്പെടുത്താനാണ് ബിജെപി നയിക്കുന്ന എൻ ഡി

കോവിഡ് സാഹചര്യത്തിൽ വോട്ടെടുപ്പ് സമയം ഒരു മണിക്കൂർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്

ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടിക മാർച്ച് ആദ്യവാരത്തോടെ പൂർത്തിയാകുമെന്ന് കെ

സി

ഹൈക്കമാന്റിന്റെ അനുമതി ലഭിച്ചാലുടൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു സ്ഥാനാർത്ഥി പട്ടിക അടുത്തയാഴ്ച പുറത്തിറക്കുമെന്നും സീറ്റ് വിഭജനം അന്തിമഘട്ടത്തിലായെന്നും മുതിർന്ന നേതാവ് ഉമ്മൻചാണ്ടി പറഞ്ഞു പുതുമുഖങ്ങൾക്കും വനിതകൾക്കും സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രാതിനിധൃമുണ്ടെന്നും വിജയം സുനിശ്ചിതമാണെന്നും അദ്ദേഹം പറഞ്ഞു

കള്ളം കൈയോടെ പിടിക്കപ്പെട്ടു അഴിമതി പ്രതിപ്പക്ഷ്ടു പുറത്തുകൊണ്ടു വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന്ട്ലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ വിവാദ കരാറിന് അംഗീക്കാൽ നൽകുമായിരുന്നെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു്

എഫ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള എൽ

തെക്കൻ മേഖലാ ജാഥയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിച്ച് വീണ്ടും ജനങ്ങളെ സമീപിക്കുന്ന എൽ

എഫിന് ഭരണത്തുടർച്ച ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ജനങ്ങൾക്കൊപ്പമാണ് എൽ

ഡി എഫിനൊപ്പമാണ് ജനങ്ങളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഭരണമാറ്റം എന്ന പതിവ് ഇക്കുറി ഉണ്ടാകില്ലെന്ന് സിപിഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എസ്

സുരേന്ദ്രൻ സംസ്ഥാനത്തെ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റ് ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന അദ്ധ്യക്ഷൻ അഞ്ചുവർഷത്തെ കേരളത്തിലെ വൃവസായ വളർച്ചയെക്കുറിച്ചു ഒരു ധവളപത്രം ഇറക്കാൻ മുഖ്യമന്ത്രി തയാറുണ്ടോ എന്നും കെ

സുരേന്ദ്രൻ നയിക്കുന്ന വിജയ യാത്രയുടെ പാലക്കാട് ജില്ലയില്ലെ പരൃടനം പൂർത്തിയായി കോട്ടമൈതാനിയിൽ നട്ടസ്സമാപന സമ്മേളനം നടിയും ബി ജെ

കൊടുങ്ങല്ലൂരിൽ തൃശൂർ ജില്ലയിലെ സമാപന പൊതുസ്യമ്മേളനം കേന്ദ്ര മന്ത്രി പ്രഹ്ളാദ് ജോഷി ഉദ്ഘാടനം ചെയ്യുറ്റുക്കു പി

സി കോൺഗ്രസ് വിട്ടതായി ഐ

സി സംസ്ഥാന സെക്രട്ടറിയും വയനാട് ഡി സി സി സെക്രട്ടറിയുമായ പി കെ അനിൽകുമാർ

ഡിയിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

എസ് പ്രവർത്തകൻ നന്ദു കൃഷ്ണന്റെ വീട്ടിൽ കേന്ദ്ര സഹമന്ത്രിമാരായ പ്രഹ്ളാദ് ജോഷിയും വി മുരളീധരനും സന്ദർശനം നടത്തി കേരളത്തിൽ സമാധാന അന്തരീക്ഷം തകർന്നിരിക്കയാണെന്ന് ശ്രീ

അന്വേഷണം നേരായ വഴിക്കാകണം കേസ് വിട്ടുതന്നാൽ അന്വേഷണത്തിന് സിബിഐ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു

ഐ ടി കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച ആൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെ രണ്ടാം ഘട്ടം കേന്ദ്രമന്ത്രി സഞ്ജയ് ധോത്രെ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു കോവിഡ് കാലയളവിൽ അക്കാദമിക് പ്രവ്വീർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടു പോക്ടൂന്ന് എൻ ഐ ടി സി യെ മന്ത്രി അഭിനന്ദിച്ചു

മാർച്ച് നാലിന് പരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കും ജോലികൾ പൂർത്തിയാക്കി മാർച്ച് അഞ്ചോടെ പാലം ഗതാഗത സജ്ജമാകുമെന്ന് ഡി എം ആർ

ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ദേശീയപാത അതോറിറ്റി ചെയർമാനെ അറിയിച്ചു

ആറുവരിപ്പാത പൂർത്തിയാകും വരെ ടോൾ ഒഴിവാക്കണമെന്നാണ സംസ്ഥാനം കത്തു നൽകിയതെന്നും അദ്ദേഹം ഫെയ്സ്ബുക്കിൽ കുറിച്ചു

കോവിഡ് പശ്ചാത്തലത്തിൽ പൊങ്കാല വീടുകളിലാക്കി ചുരുക്കിയെങ്കിലും ക്ഷേത്രത്തിലെ ചടങ്ങുകൾ മുറപ്രകാരം നടക്കുകയാണ്

കെ പ്രശാന്ത് തുടങ്ങിയ ജീനുപ്രതിനിധികളുടെ സാന്നിദ്ധ്യത്തിലാണ് ക്ഷേത്രി ്ത്രന്തി പരമേശ്വരൻ വാസുദേവൻ നമ്പൂതിരി പണ്ടാര അട്ടൂപ്പിൽ തീ പകർന്നത് കോവിഡ് സാഹചര്യം പരിഗണിച്ച് ഈ വർഷം ക്ഷേത്രത്തിലെ അടുപ്പിൽ മാത്രമാണ് പൊങ്കാല സമർപ്പിച്ചത്

ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായ എഴുന്നെള്ളിപ്പ് മാറ്റമില്ലാതെ നടക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആറു ടണ്ണിലധികം ജലാറ്റിൻ സ്റ്റിക്കാണ് പിടികൂടിയത് ഒന്നരക്കോടിയോളം രൂപ വിലവരുമെന്ന് പോലീസ് പറഞ്ഞു

പച്ചക്കറി ലോറിയിൽ കടലാസ് പെട്ടികളിൽ ഒളിപ്പിച്ചു നിലയിലായിരുന്നു സ്ഫോടക വസ്തുക്കൾ

കർശന കോവിഡ് മാനദണ്ഡങ്ങളോടെയാണ് റാലി സംഘട്ടിപ്പിച്ചിരിക്കുന്നത്

കാസർഗോഡ് കോഴിക്കോട് വയനാട് പ്പാലക്കാട് മലപ്പുറം തൃശൂർ കണ്ണൂർ മാഹി ലക്ഷദ്വീപ് എന്നീ്പിടങ്ങളിൽ നിന്നുള്ളവർക്ക് പങ്കെടുക്കാം

ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധം

സെലക്ഷൻ ട്രയൽസിലൂടെ കുട്ടികളെ തെരഞ്ഞെടുക്കും

പി സ്കൂൾ മൈതാനം സമീപമുള്ള കൂട്ടിലങ്ങാടി മൈതാനം എന്നിവിടങ്ങളിലായിരിക്കും പരിശീലനം ഐഎഫ്എഫ് കെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ തലശ്ശേരി പതിപ്പ് ഇന്ന് സമാപിക്കും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നാല് മേഖലകളിലായാണ് മേള

മൻ കി ബാത്ത് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെ നാളെ ജനങ്ങളുമായ്ക്കി ആശയങ്ങൾ പങ്കുവയ്ക്കും